നടക്കുന്ന രാജസ്ഥാനിലും തെലുങ്കാനയിലും പ്രചാരണം ഊർജ്ജിതം

കേരളത്തിൽ പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പദ്ധതി ആവിഷ്ക്കരിച്ചതായി മുഖ്യമന്ത്രി ശബരിമല വിഷയം ഉന്നയിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം

വികസന ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വോട്ട് ചെയ്യാൻ നാഗൂറിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു

യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ മതത്തിന്റെ പേരിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുവെന്ന് ശ്രീ മുക്താർ അബ്ബാസ് ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു

കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ചേർന്ന് ഇടനാഴിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ വോയിസ് ഇന്ത്യയിൽ നിന്നുള്ള ൃ സ്ലിഖ് തീർത്ഥാടകർക്ക് വളരെ എളുപ്പത്തിൽ കർതാർപ്പൂരില്ലെ ഗുരുദാര ദർബാർ സാഹിബിൽ എത്തുന്നതിനായാണ് ഇടനാഴി നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു സിഖ്കാരെ സംബന്ധിച്ച് ചരിത്രദിനമാണിതെന്ന് കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം കൈവരുമെന്ന പ്രതീക്ഷയും കേന്ദ്രമന്ത്രി പങ്കുവച്ചു സിഖ് വംശജരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് കർതാപൂർ ഇടനാഴിയെന്നും നിർമ്മാണത്തിന് സഹകരിച്ച പാകിസ്ഥാന് നന്ദി അറിയിക്കുന്നതായും കേന്ദ്രമന്ത്രി ഹർദീപ് പുരി പ്രസ്താവനയിൽ വൃക്തമാക്കി

ഇടനാഴിയുടെ ഇന്ത്യൻ ഭാഗത്ത് നിന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു തിങ്കളാഴ്ച തുടക്കം കുറിച്ചിരുന്നു പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലാണ് ഇന്തൃയിൽ ഇടനാഴിയുടെ തുടക്കം

സിഖ് തീർത്ഥാടകർക്കായുള്ള കർത്യാർപൂർ ഇടനാഴിയുടെ നിർമ്മാണ പ്രവൃത്തി പോലുള്ള പ്രവിത്രമായ ചടങ്ങിനിടെ പാക് പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവന നടത്തിയത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

ശ്രീ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതും ഭീകരർക്ക് അഭയകേന്ദ്രം ഒരുക്കുന്നതും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ദുരിതം ബാധിച്ചവർക്കായി മുഖ്യമന്ത്രി ഒരു കോടി രൂപയുടെ ദുരിതാശ്ചാസ സാമഗ്രികൾ വിതരണം ചെയ്തു ദുരിതാശ്വാസ കൃാമ്പിൽ കഴിയുന്ന ആയിരത്തോളം ജനങ്ങളെ ക ് അവരുമായി അദ്ദേഹം ആശയവിനിമൃയം നടത്തി

എണ്ണ വിലയിലെ അസ്ഥിരത തീവ്രവാദം എന്നീ വിഷയങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്തവം ആയുഷ്മാൻ ഭാരത് പദ്ധതി സോയിൽ ഹെൽത്ത് കാർഡ് മറ്റ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്നിവയെക്കുറിച്ചും പ്രധാനമന്ത്രി ഉച്ചുകോടിയിൽ സംസാരിക്കുമെന്ന് ശ്രീ

അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ പങ്കാളികളാകാൻ അംഗരാഷ്ട്രങ്ങളോട് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യും

മാധ്യമപ്രവർത്തകൻ ഷുജാത് ബുഖാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റാര്രോപിതനായ പ്രതിയാണ് നവീദ് ജട്ട് ഏറ്റുമുട്ടലിൽ മൂന്ന് സുര്ക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു

ഇതിന്റെ സമഗ്ര രൂപരേഖ അംഗീകരിച്ചതായും ഡോ

വേണുവിനെ പദ്ധതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണവും പൂർണമായി പിൻവലിക്കുക എന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം എന്നാൽ ഈ ആവശ്യം പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറാവാത്തതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനു ചുറ്റും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു

ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ കേന്ദ്ര ടൂറിസം സഹമന്ത്രി കെ ജെ അൽഫോൺസ് ഗോവ ഗവർണർ മൃദുല സിൻഹ സംസ്ഥാനമന്ത്രി വിജയ് സർദേശായ് തുടങ്ങിയവർ സംബന്ധിക്കുന്നു ്

ചടങ്ങിൽ പ്രമുഖ തിരക്കഥാകൃത്ത് സലിംഖാനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിക്കും

എൽ ടി ടി ഇ പോരാട്ടകാലത്ത് കുറ്റവാളിയെ സഹായിക്കുന്നതിനായി തട്ടിക്കൊ ു പോയി എന്ന കേസിൽ പ്രതിചേർക്കപ്പെട്ട രൂപീന്ദ്രയെ അടുത്തമാസം അഞ്ചു വരെ കോടതി റിമാന്റ് ചെയ്തു ഇയാളെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കൊളംബോ കോടതി ആഴ്ചകൾക്ക് മുമ്പേ ഉത്തർവിട്ടിരുന്നു ഈ സാഹചരൃത്തിലാണ് സേനാമേധാവി ഇന്ന് സ്വമേധിയാ കോടതിയിൽ കീഴടങ്ങിയത്

അഭയകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോടതി നടപടി